നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും

ഊർജ്ജിതമായി

ധർമ്മശാലയിൽ തുടക്കമാകും മരട് ഫ്ളാറ്റ് സമയപരിധി കൊച്ചി മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ ഒഴിയാൻ താമസക്കാർക്ക് നഗരസഭ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കും ഫ്ളാറ്റുകൾ ഒഴിയാനാവില്ലെന്ന് കാണിച്ച് ഉടമകൾ നഗരസഭാ സെക്കടവിക്ക് മറുപടി നൽകിന്നിടുണ്ട് മരട് ഗവർണ്ണർ കൊച്ചിയിലെ മരട് വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്നും എന്നാൽ സംഭവം നിരീക്ഷിച്ച് വരികയാണെന്നും ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വിഷയം കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടണമെന്ന് ശ്രീ

മരട് നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ളാറ്റ് നിവാസികൾ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്

കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി മരട് നഗരസഭയ്ക്ക് മുന്നിൽ സി

ഐ എം സംഘടിപ്പിച്ച പൊതുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നേരത്തെ ശ്രീ കോടിയേരി ഫ്ളാറ്റുകൾ സന്ദർശിച്ച് താമസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു

ശക്തമായ ത്രികോണ മൽസരത്തിന് കളമൊരുങ്ങുന്നുവെന്നാണ് സൂചന മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ

എഫും എൻ

എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് അറിയിച്ചു ഷട്ടർ തുറക്കില്ല മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ തുറക്കാനിരുന്ന പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഫിൽക്ക ഫിൽക്ക രാജ്യാന്തര ചലച്ചിത്രോൽസവത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്സ് സെന്ററിൽ തുടക്കമായി ഒരാഴ്ച നീളുന്ന മേള സംവിധാകയൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജാഫ്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സ്വവത്തിന്റെ ഭാഗമായുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് അർഹ്ഹനായ് ചലച്ചിത്ര പ്രവർത്തകൻ വി

ജോസഫിനെ ചടങ്ങിൽ ആദ്യരിച്ചു

മാപ്രാണം സ്വദേശി രാജൻ ആണ് കൊല്ലപ്പെട്ടത്

പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ബി

സംസ്ഥാനത്തെ വള്ളം കളികളെ കോർത്തിണക്കി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മൂന്നാമത്തെ മത്സരമാണിത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

സമാപന സമ്മേളനം വ്യൈകീട്ട് രാപ്പാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും

കുമളി പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം ചൊവ്വാഴ്ച കുമളി ഡി ടി

സി ഹാളിൽ ചേരും

കരുണാകരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ലീഡർ സ്റ്റഡി സെന്റർ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ലീഡർ ജന്മശതാബ്ദി പുരസ്ക്കാരം മുൻ കേന്ദ്രമന്ത്രിയും കെ

സി സി പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന് സമ്മാനിക്കും മറ്റന്നാൾ കോഴിക്കോട്ട് കോൺഗ്രസ്സ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പുരസ്കാരം കൈമാറും

കലോത്സവത്തിന്റെ സ്വാഗ്രതസംഘം രൂപീകരണവും ലോഗോ പ്രകാശനവും വാഴക്കുളം ക്ടാർമ്യൽ സി

മാനന്തവാടി ഡിപ്പോയ്ക്കും ബത്തേരി ഡിപ്പോയ്ക്കുമാണ് കൂടുതൽ വരുമാനം ലഭിച്ചത്

പെട്ടിമുടി റോഡ് കനത്ത മഴയിൽ രോഗികളടക്കമുള്ളവരെ തകർന്നതോടെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്തേക്ക് ചുമന്നിറക്കി ആശുപത്രിയിൽ എത്തിക്കേണ്ട സ്ഥിതിയിലാണ് ആദിവാസി ജനത